ധന പൂർത്തിയാക്കി നാട്ടിലെത്തിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചതായി കേന്ദ്ര മന്ത്രി ഡോ

സംസ്ഥാനത്തെ ഓൺലൈൻ മരുന്നുവില്പന നിയന്ത്രിക്കാൻ നടപടി യെടുക്കുമെന്ന് മന്ത്രി കെ

ശൈലജ ജല ഗുണനിലവാര പരിശോധനയ്ക്ക് ഹരിത കേരള മിഷൻ സമഗ്ര സംവിധാനം തയ്യാറാക്കി ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിൽ പഞ്ചാബ് സർവകലാ ശാലയ്ക്ക് കിരീടം

ജയശങ്കർ അറിയിച്ചു കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമായി മീൻപിടിക്കാൻ പോയവ രാണ് ഇറാനിലെ കൊറോണ ജാഗ്രതാ നിർദ്ദേശത്തെ തുടർന്ന് കുടുങ്ങി പ്പോയത്

ഇറാനിൽ കുടുങ്ങിയ തൊഴിലാളികളെ തിരിച്ചെത്തിക്കാൻ ഇന്ത്യൻ എംബസി പ്രാദേ ശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടുവരികയാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു

ങ്ങും

ഗർഭ ഛിദ്ര ഭേദഗതി നിയമം പ്രത്യക്ഷനികുതി വിവാദ്സേ വിശ്വാസ് ബിൽ തുട ങ്ങിയ പ്രധാനപ്പെട്ട ബില്ലുകൾ സമ്മേളനത്തിന്റെ പരിഗണനയ്ക്കു വരും

സായുധ പൊലീസ് സേനയിൽ നിന്ന് വെടിയുണ്ടകൾ നഷ്ടമായെന്ന സി എ ജി പരാമർശവും തുടർനടപടികളും പ്രതിപക്ഷം നിയമസഭയിൽ ശക്തമായി ഉന്നയിച്ചേക്കും ലൈഫ് പദ്ധതിയടക്കം വിഷയങ്ങളും ചൂടേ റിയ ഭരണ പ്രതിപക്ഷ സംവാദത്തിന് കാരണമായേക്കുമെന്നാണ് വിലയി രുത്തൽ നിയമസഭയെ കടലാസ് രഹിതമാക്കുന്ന ഇ നിയമസഭാ പദ്ധതി സമ്മേളന കാലത്ത് കൂടുതൽ വിപുലമാക്കും സഭാനടപടികൾ സംബന്ധിച്ച ടെലിവിഷൻ ഓൺലൈൻ പരിപാടികൾക്ക് ഈ സമ്മേളന കാലത്ത് തുട ക്കമാകും കൊല്ലത്തെ ദേവനന്ദയുടെ മരണം നിയമസഭയിൽ ഉന്നയിക്കു മെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല അറിയിച്ചു കുട്ടിയുടെ മരണ കാരണം കണ്ടെത്താൻ സമഗ്രാന്വേഷണം വേണമെന്ന് കുട്ടിയുടെ കൂടവട്ടൂരിലെ വീട്ടിലെത്തിയ ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു സംസ്ഥാനത്തെ ഓൺലൈൻ മരുന്നുവില്പന നിയന്ത്രിക്കാൻ നട പടിയെടുക്കുമെന്ന് മന്ത്രി കെ

അനൃസംസ്ഥാന ങ്ങളിൽ നിന്ന് മരുന്നുവില്പന നടത്തുന്ന കമ്പനികളെ നിയന്ത്രിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായംകൂടി ലഭിക്കണമെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വ്യക്തമാക്കി ഡോക്ടർമാരുടെ കുറിപ്പുകളില്ലാതെയാണ് ഓൺലൈൻ കമ്പ നികൾ മരുന്നു വില്ക്കുന്നത് മരുന്നുകളുടെ ഓൺലൈൻ വില്പന നിയമ വിരുദ്ധമാണെന്നും അവർ അറിയിച്ചു കേരളത്തിൽ ഓൺലൈൻ മരുന്നു വില്പന നടത്തിയ ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് കഴിഞ്ഞ വർഷം പൂർണ്ണമായി റദ്ദാക്കിയിരുന്നു എന്നാൽ മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഈ സ്ഥാപനം കേരളത്തിൽ മരുന്നുവില്പന നടത്തുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു

കോഴിക്കോട്ട് ജില്ലയിൽ ഏഴു പേർ വീടുക ളിലും ഒരാൾ ബീച്ച് ആശുപത്രിയിലെ ഐസൊലേഷൻ വാർഡിലും നിരീ ക്ഷണത്തിലാണ് കണ്ണൂർ ജില്ലയിൽ ഒൻപതുപേരാണ് വീടുകളിൽ നിരീക്ഷ ണത്തിൽ കഴിയുന്നത് പാലക്കാട് ജില്ലയിൽ രണ്ടുപേർ വീടുകളിൽ കൊറോണ നിരീക്ഷണത്തിലുണ്ട്

നിർഭയ കേസിൽ പവൻഗുപ്ത സമർപ്പിച്ച തിരുത്തൽ ഹർജി സുപ്രീം കോടതി ഇന്നു പരിഗണിക്കും കേസിലെ മറ്റു മൂന്ന് പേരുടെയും തിരുത്തൽ ഹർജിയും ദയാഹർജിയും നേരത്തെ തള്ളിയിരുന്നു പ്രതിക ളിൽ ഒരാളായ അക്ഷയ് ഠാക്കൂർ രണ്ടാമതും രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകിയിട്ടുണ്ട് ് ജമ്മു കശ്മീരിലെ ത്രാൽ പ്രദേശത്ത് മൂന്ന് ഭീകരപ്രവർത്തകരെ സുരക്ഷാസേന വെടിവെച്ചുകൊന്നു പൊലീസും സൈന്യവും സി ആർ പി എഫും ചേർന്ന് നടത്തിയ സംയുക്ത റെയ്ഡിലാണ് ഭീകര പ്രവർത്ത കരെ വധിച്ചത്

സിൽ ചണ്ഡീഗഡിലെ പഞ്ചാബ് സർവകലാശാലയ്ക്ക് കിരീടം

വനിതാവിഭാഗം അത്ലറ്റിക്സിൽ എം ജി സർവകലാശാല രണ്ടാം സ്ഥാനത്തെത്തി പുരുഷ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും എം ജിയ്ക്കാ ണ്

കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ കേരള എഫ് സി ഫൈന ലിൽ പ്രവേശിച്ചു കോഴിക്കോട്ട് ഇന്നലെ കേരള പൊലീസിനെ എതിരില്ലാത്ത നാലുഗോളിന് തോല്പിച്ചാണ് ഗോകുലം ഫൈനലിസ്റ്റുകളായത് അടുത്ത ശനിയാഴ്ച ഫൈനലിൽ അവർ കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും

മറ്റു മത്സരങ്ങളിൽ കേരള പൊലീസ് കെ എസ് ഇ ബിയെയും ഒ

സി ഐ സി എഫ് ചെന്നൈയേയും തോൽപിച്ചു

കോഴിക്കോട്ട് സമാപിച്ച സംസ്ഥാന പോളി ടെക്നിക്ക് ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻ ഷിപ്പിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളു ടെയും വിഭാഗത്തിൽ എസ് ആർ ജി പോളിടെക്നിക്ക് തൃപ്പയാർ ജേതാക്ക ളായി ആൺകുട്ടികളുടെ വിഭാഗത്തിൽ തിരുവനന്തപുരം സെൻട്രൽ പോളിടെക്നിക്കും പെൺകുട്ടികളിൽ തൃശൂർ വിമൻസ് പോളി ടെക്നിക്കും രണ്ടാം സ്ഥാനം നേടി

ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പിൽ കാസർകോട് റെയിൻബോ സ്റ്റാർ ചാമ്പൃന്മാരാ യി പാലക്കാട് തണ്ടേഴ്സിനെ എട്ടുപിക്കറ്റിനാണ് അവർ തോൽപിച്ചത്

ഐ ലീഗ് ഫുട്ബോളിൽ ഗോകുലം കേരള എഫ് സി നാളെ ഈസ്റ്റ് ബംഗാളിനെ നേരിടും വൈകിട്ട് ഏഴിന് കോഴിക്കോട് കോർപറേ ഷൻ സ്റ്റേഡിയത്തിലാണ് മത്സരം

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

കൂടുംബശ്രീ പ്രളയബാധിത അയൽക്കൂട്ടങ്ങൾക്ക് അനുവദിച്ച പലിശ സബ്സിഡി വിതരണം മന്ത്രി എം

മണി ഉദ്ഘാടനം ചെയ്തു

എല്ലാ മേഖലകളുടെയും സമഗ്ര വിക സനം രൂപരേഖയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്

കലാ സാംസ്കാരിക മേഖലയ്ക്ക് സമൂഹത്തെ നേർവഴി യിലേക്ക് നയിക്കുന്നതിൽ പ്രധാന പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാല ക്കാട്ട് സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപറേഷൻ രജത ജൂബി ലിയുടെ ഭാഗമായ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായി രുന്നു മന്ത്രി

ശൈലജ ഉദ്ഘാടനം ചെയ്തു പകർച്ചവ്യാധികളെ പ്രതിരോധിക്കലാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്ന് മന്ത്രി ചടങ്ങിൽ പറ ഞ്ഞു

ലൻസ് റെയ്ഡ് നടത്തി

ചിറ്റൂർ തത്തമംഗലം നഗരസഭാ പരിധിയിലെ ഗവൺമെന്റ് ഓഫീസുകൾക്കും വിദ്യാലയങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി നൽകി

ഹെലി ടാക്സി സർവീസ് ആരംഭിച്ചു

ആറുപേർക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന ഹെലികോപ്റ്ററാണ് സ്വകാര്യ ഏജൻസിയുടെ ഹെലി ടാക്സി സർവീസിന് ഉപയോഗിക്കുന്നത്

പാലക്കാട് ലക്കിടിയിൽ സമാപിച്ച അസാപ് റീബൂട്ട് കേരള ഹാക്ക ത്തോണിൽ പാലക്കാട് എൻ എസ് എസ് എഞ്ചിനിയറിംഗ് കോളേജ് ഒന്നാം സ്ഥാനം നേടി ജലം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി യാണ് അവർ ജേതാക്കളായത് പാലാ സെന്റ് ജോസഫ്സ് എഞ്ചിനിയറിംഗ് കോളേജ് രണ്ടാം സ്ഥാനവും കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനിയറിംഗ് കോളേജ് മൂന്നാംസ്ഥാനവും നേടി

കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് പാലക്കാട്ടേക്ക് കെ എസ് ആർ ടി സിയുടെ ഫാസ്റ്റ് പാസഞ്ചർ സർവീസ് ആരംഭിച്ചു